ഇന്ത്യാ ചരിത്രത്തിലെ സുപ്രധാന ദിനമെന്ന് പ്രിധാനമന്ത്രി നരേ ന്ദ്രമോദി കേരളത്തിലെ പുറമ്പോക്കുകളിൽ ഉൾപ്പെടെ കഴിയുന്നവർക്ക് റേഷൻകാർഡ് നൽകാൻ പ്രത്യേക്ട പരിപാടി നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ മാർഗ്ഗു നിർദേശങ്ങൾ സംസ്ഥാനത്തെ സ്കൂളുകൾ അവഗണിക്കുകയാണെന്ന് ചെയർമാൻ പി സുരേഷ് അയോധ്യ തർക്ക ഭൂമി കേസ് വിധിക്കെതിരെ സമർപ്പിച്ച പുനപരി ശോധനാ ഹർജികൾ ഇന്ന് സുപ്രീംകോടതിയിൽ കേരള രാജ്യാന്തര ചലച്ചിത്ര മേള നാളെ സമാപിക്കും

തിങ്കളാഴ്ച ലോക്സഭ പാസ്സാക്കിയ ബിൽ ഇന്നലെ രാജ്യസഭയിലും പാസ്സായി

അയൽരാജ്യങ്ങളായ പാക്കിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നി വിടങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന യാതനകൾ പരിഹരിക്കാൻ ഭേദഗതി ബിൽ ചരിത്രപരമായ ആവശ്യമാണെന്ന് നേരത്തെ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ ആഭ്യന്തര മന്ത്രി അമിത്ഷാ വ്യക്തമാ ക്കി മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന വിഭജനത്തിനുശേഷം ആ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ കടുത്ത പീഡനം നേരിടുകയാ ണെന്നും അദ്ദേഹം പറഞ്ഞു മതാടിസ്ഥാനത്തിലെ വിഭജനത്തിന് കോൺഗ്രസ് എന്തിന് സമ്മതം നൽകിയെന്നും അമിത്ഷാ ചോദിച്ചു

കോൺഗ്രസും ഇടതു പാർട്ടികളും തൃണമൂൽ കോൺഗ്രസ് എസ് പി ബി

പി ആർ

ഡി എൻ

പി ടി

എസ് പാർട്ടികൾ ബില്പിനെ എതിർത്തു ശിവസേന വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് സഭ യിൽ നിന്ന് ഇറങ്ങിപ്പോയി ഭേദഗതി ബിൽ പാസ്സാക്കിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം അറിയിച്ചു ഇന്ത്യാ ചരിത്രത്തിലെ സുപ്രധാന ദിനമാണ് ബിൽ പാസ്സായ ദിവസമെന്ന് പ്രധാനമന്ത്രി ന്റരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു സാഹോദരൃത്തിന്റെയും സഹാനുഭൂതിയുടെയും ദേശീയത ഉയർത്തി പ്പിടിക്കുന്നതാണ് ഈ നടപടിയെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു കോൺഗ്രസും ജമിയത് ഉലമയും മുസ്ലിം ലീഗും ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ പുറമ്പോക്കുകളിൽ ഉൾപ്പെടെ കഴിയു ന്ന വർക്ക് റേഷൻകാർഡ് നൽകാൻ പ്രത്യേക പരിപാടി നടപ്പാക്കണമെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ നിർദേശിച്ചു ജില്ലാ കലക്ടർമാർ ഇത് പ്രത്യേക ദൌതൃമായി കാണണം റേഷൻ കാർഡില്ലാത്ത എത്രപേർ സംസ്ഥാനത്തുണ്ടെന്ന കണക്കെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവ ശ്യപ്പെട്ടു തിരുവനന്തപുരത്ത് ജില്ലാകലക്ടർമാരുടെയും വകുപ്പ് മേധാ വികളുടെയും വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ കലക്ടർമാർ മുമ്പ് നടത്തിയ രീതിയിൽ പൊതുജന സമ്പർക്ക പരി പാടികൾ നടപ്പാക്കണമെന്നും താലൂക്ക്തലത്തിൽ ഫയൽ തീർപ്പാ ക്കൽ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി നിർദേശം നൽകി ഇടുക്കി അടക്കം ജില്ലകളിൽ പട്ടയ വിതരണം വേഗത്തിലാക്കണം

വയനാട് ബത്തേരിയിൽ വിദ്യാർഥിനി ക്ലാസ്മുറിയിൽ പാമ്പ്കടിയേറ്റ് മരിച്ച സംഭവത്തിന് ശേഷം ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗനിർദേശങ്ങൾ സംസ്ഥാനത്തെ സ്കൂളുകൾ അവഗണിക്കുകയാണെന്ന് ചെയർമാൻ പി സുരേഷ് കുറ്റപ്പെടുത്തി കോഴിക്കോട് പുതുപ്പാടി മണൽവയൽ സ്കൂളിൽ കണ്ണിന് പരിക്കേറ്റ വിദ്യാർഥിക്ക് ചികിത്സവൈകിയെന്ന് ആരോപണത്തിൽ സ് കൂളിലെത്തി മൊഴിയെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ് കൂൾ സമയത്ത് ക്ലാസിലായാലും പരിസരത്തായാലും എന്ത് അപകടങ്ങൾ സംഭവിച്ചാലും കുട്ടികളെ സ് കൂൾ അധികൃതർ നേരിട്ട് ആശുപത്രിയിലെത്തിക്കണമെന്ന് കമ്മീഷൻ മാർഗനിർദേശം നൽകിയിരുന്നു എന്നാൽ അത് പല സ്കൂളുകളും മുഖവിലയ് ക്കെടുക്കുന്നില്ല എന്നതാണ് മനസിലാക്കുന്നതെന്നും സംഭവത്തിൽ ഉടൻ ഗവൺമെന്റിനും വിദ്യാഭ്യാസ വകുപ്പിനും റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കമ്മീഷൻ ചെയർമാൻ അറിയിച്ചു

ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഗ്രാമ വികസനത്തിന് എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സയൻസ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്

ദേശീയപാതാ അതോറിറ്റിക്ക് അടിസ്ഥാന മേഖല നിക്ഷേപ ട്രസ്റ്റ് രൂപീക രിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗം അനുമതി നൽകി സെക്യൂരിറ്റീസ് ആന്റ് എക്സ്ചേഞ്ച് ബോർഡിന്റെ മാർഗ്ഗ നിർദേശ പ്രകാരമായി ന രിക്കും ട്രസ്റ്റ് രൂപീകരണം പ്രായമായ മാതാപിതാക്കളുടെയും മുതിർന്ന പൌരൻമാരുടെയും ക്ഷേമം സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു

അയോധ്യാ തർക്കഭൂമി കേസ് വിധിക്കെതിരെ സമർപ്പിച്ച പുനപരിശോ ധനാ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും തുറന്ന കോട തിക്ക് പകരം ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെയുടെ ചേംബറി ലായിരിക്കും ഹർജികൾ പരിഗണിക്കുന്നത് അഞ്ചംഗ ബെഞ്ചാണ് റിവ്യൂ ഹർജികൾ പരിശോധിക്കുന്നത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള നാളെ തിരുവനന്തപുരത്ത് സമാപിക്കും സമാപന സമ്മേളനം നിശാഗന്ധിയിൽ വൈകീട്ട് മുഖ്യമന്ത്രി പിണ റായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

മത്സര വിഭാഗത്തിൽ ഓൾ ദ വിക്ടറി കാമിൽ എന്നിവ ഉൾപ്പെടെ ഏഴ് സിനിമകൾ പ്രദർശി പ്പിക്കും മത്സര ചിത്രങ്ങളിൽ നിന്ന് മേളയിലെ ഇഷ്ടചിത്രം തെരഞ്ഞെടുക്കാൻ പ്രേക്ഷകരുടെ വോട്ടിങ്ങിനും രാവിലെ തുടക്കമാകും നാളെ വൈകീട്ട് അഞ്ചേമുക്കാൽ വരെ പ്രേക്ഷകർക്ക് വോട്ടു ചെയ്യാം ഭിന്നശേഷി സൌഹൃദ കേരളം സന്ദേശത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും കോളജുകളിലും വിദ്യാർഥികൾ രാവിലെ പത്തരയ്ക്ക് ഭിന്നശേഷി ശാക്തീകരണ പ്രതിജ്ഞയെടുക്കും തിരു വനന്തപുരം ഗവ വിമൺസ് കോളജിൽ മന്ത്രി കെ

ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റാനും പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കാനും ലക്ഷ്യമി ട്ടാണ് പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകളുടെ സഹ കരണത്തോടെ പരിപാടി സംഘടിപ്പിക്കുന്നത്

മൂന്നു മത്സര പരമ്പരയിൽ ആദ്യത്തേത് ചെന്നൈയിലാ ണ് തിരുവനന്തപുരത്ത് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഡൽഹിയെ ഫോളോഓൺ ചെയ്യിച്ച കേരളം വിജയത്തിലേക്ക് നീങ്ങുന്നു

ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക്സിൽ ആദ്യദിവസം കേരളത്തിന് ഒരു വെങ്കലം മാത്രം പഞ്ചാബിലെ സംഗ്രൂരിൽ പെൺകുട്ടികളുടെ ഹൈജംപിൽ നേടിയ ഏക മൂന്നാം സ്ഥാനം മാത്രമാണ് കേരളത്തിന് ആശ്വാസമായത് ഇന്ന് ഒമ്പത് ഇനങ്ങളിൽ ഫൈനൽ നടക്കും വെല്ലൂരിൽ ദക്ഷിണ മേഖലാ പുരുഷ ഫുട്ബോൾ ചാംപൃൻഷിപ്പിൽ പങ്കെ ടുക്കുന്ന കാലിക്കറ്റ് സർവ്വകലാശാല ടീമിനെ പ്രഖ്യാപിച്ചു കൊണ്ടോട്ടി ഇ

ഇ എ കോളജിലെ ടി സുഹൈൽ ക്യാപ്റ്റനും കോഴിക്കോട് ഫറൂഖ് കോളജിലെ മൻഹൽ വൈസ് ക്യാപ്റ്റനുമാ ണ്

കെ രാജീവാണ് കോച്ച് ടീം ഇന്ന് പുറപ്പെടും

കാലിക്കറ്റ് സർവ്വകലാശാല അന്തർകലാലയ പുരുഷ ബോക്സിങ് ചാംപ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും വനിതാ ബോക്സിങ് ചാംപ്യൻഷി പ്പിൽ തൃശൂർ വിമല കോളജ് ചാംപ്യൻമാരായി തൃശൂർ സെന്റ് മേരീസ് കോളജിനാണ് രണ്ടാം സ്ഥാനം

നാളെ രാവിലെ കല്ലേക്കുളങ്ങര റെയിൽവേ ഗ്രൌണ്ടിൽ മന്ത്രി കെ രാജു മേള ഉദ്ഘാടനം ചെയ്യും

വിളകളുടെ രോഗങ്ങൾ കണ്ടെത്തി ചികിത്സ നൽകുന്ന പ്ലാന്റ് ഹെൽത്ത് ക്സിനിക്കുകളായി സംസ്ഥാനത്തെ എല്ലാ കൃഷിഭവനുകളെയും മാറ്റുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ കൊല്ലത്ത് പറഞ്ഞു ആദിച്ചനല്ലൂർ ഗ്രാമാപഞ്ചായത്തിലെ കൃഷിഭവൻ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ ഐ എസ് ഒ പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക വൃത്തിയെ ജനകീയവത്കരിക്കുന്നതിന്റെ ഭാഗമായി കൃഷി പാഠശാലകൾ ആരംഭിക്കും വിരമിച്ച കൃഷി ഓഫീസർമാരുടെ സേവനം കൃഷിപാഠശാലയിൽ ഉപയോഗപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നാലാം വാർഷികാഘോഷ സമാ പനം രാവിലെ പേരാമ്പ്രയിൽ മന്ത്രി ടി

ഭരണ റിപ്പോർട്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രകാശനം ചെയ്യും

വിമാനക്കമ്പനി പ്രതി നിധികളും മലബാർ മേഖലയിലെ എം പിമാരും മുതിർന്ന ഉദ്യോഗ സ്ഥരും ചർച്ചയിൽ പങ്കെടുക്കും

ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഇറക്കുമതി ചുങ്കം വർധിപ്പി ക്കണമെന്നാവശ്യപ്പെട്ട് എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ നേതൃ ത്വത്തിൽ ചവറ കേരളിമിനറൽസ് ആന്റ് മെറ്റൽസ് ലിമിറ്റഡിലെ തൊഴിലാളി നേതാക്കൾ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി